രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം

കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഡൽഹിയിലേയ്ക്ക് നീങ്ങുന്ന കർഷകർ സമാധാനം പാലിക്കണമെന്ന് പോലീസിന്റെ അഭ്യർത്ഥന

ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കേരളത്തിലെ കാലടിയിൽ ആദി ശങ്കര ഡിജിറ്റൽ അക്കാദമിക്ക് തുടക്കം കുറിച്ച് വെർചൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക വിജ്ഞാന സമൂഹത്തിൽ വിവരങ്ങളാണ് സൂപ്രധാന ഘടകമെന്നും അത് വേഗം പ്രിലഭിക്കുന്നവർക്കാണ് നേട്ടമൂണ്ടാകുന്നതെന്നും ഉപരാഷ്ട്രപ്തി പറഞ്ഞു

അഹമ്മദാബാദ് ഹൈദരാബാദ് പൂനെ എന്നിവിടങ്ങളിലെ പ്രതിരോധമരുന്ന് വികസന കേന്ദ്രങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക നാളത്തെ സന്ദർശനവും പ്രതിരോധമരുന്ന് വികസനത്തിലെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് കൃത്യമായ ധാരണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ കാര്യാലയം ടിറ്ററിൽ കുറിച്ചു

ശൈലജ അറിയിച്ചു

ജയശങ്കർ യു

ഇ വിദേശകാര്യ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി വിവിധ മേഖലകളിൽ തന്ത്രപ്രധാന സഹകരണം തുടരാൻ ധാരണയിലെത്തി വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം

എ

സംഭവവികാസങ്ങളെപ്പറ്റി ചർച്ച നടത്തിയ ഇരു വിദേശകാര്യ മന്ത്രിമാരും അന്താരാഷ്ട്ര വിഷയങ്ങളിലെ സഹകരണം തുടരാനും തീരുമാനമായി കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യാ സ്വീകരിച്ചു നടപടികൾ ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ശ്രീ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആൾ്സകൾ കൈമാറിയ അദ്ദേഹം കോവിഡ് കാലത്ത് ് ഇന്ത്യൻ പൌരൻമാർക്ക് പ്രത്യേകം പ്രിഗണനാട് നിൽകിയിട്ടിയു

അബുദാബിയിലെ ഇന്ത്യൻ സമൂഹവുമായി വെർചൽ കൂടിക്കാഴ്ചയും വിദേശകാര്യമന്ത്രി നടത്തി മഹാമാരി കാലത്ത് ഇന്ത്യൻ പൌ്രന്മാരെ സംരക്ഷിക്കാനായി ഇന്ത്യൻ അസോസിയേഷനുകൾ നടത്തിയ പ്രവർത്തനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കർഷക നേതാക്കളുമായി പോലീസ് നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് അനുമതി നൽകിയത്

ഇന്ത്യയുടെ ശിഖർ ധവാനും ഹാർദിക് പ്ലാണ്ഡ്യയും അർധ സെഞ്ചുറി നേടിയെങ്കിലും വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല

ഇവർക്ക് പ്രത്യേക പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു ഐ

സംസ്ഥാന തിരഞ്ഞെടുപ്പു കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നു നിബന്ധനകൾ നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർ നടപടികളാരംഭിച്ചു നിയമം ലംഘിച്ചു് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ ആന്റീ ഡീഫേസ്മെന്റ് സ്കാഡുകൾ നീക്കം ചെയ്തു തുടങ്ങി

പരിസ്ഥിതി സൌഹൃദ പ്രചരണോപാധികൾ മാത്രമേ പാടുള്ളൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും

ചെന്നൈയിലെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുകയാണ്

മലയാളത്തിലുള്ള പരിഭാഷയും ് തുടർന്ന് കേൾക്കാം

രാജ്യത്തെ പഴയ വാഹനങ്ങളുടെ പൈതൃകം സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനുദ്ദേശിച്ചാണ് നടപടി

ആശുപത്രിയിലെ ആറു പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി

നാലു മാസം ്മുമ്പ് നയഗഡ് ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പ്പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സ്ട്രക്ഷിച്ചുവെന്ന ആരോപണത്തിൽ കൃഷിമന്ത്രി അരുൺ ഡ്സാഹു രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രപ്പതിപക്ഷം സഭാഗം നടപടികൾ തടസ്സപ്പെടുത്തിയത്